പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകു്മെന്ന് പ്രതീക്ഷിക്കു ന്നതായി എ

ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ

മന്ത്രി ഡോ

ജലീൽ ആദ്യവിമാനം ഫ്ളാഗ് ഓഫ് ചെയ്യും

മുരളീധരൻ

എൽഎ മാർ രാജിവച്ചതിനെതുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസ് ജെഡിഎസ്

എൽഎ മാരുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് കൂടി ക്കാഴ്ച നടത്തിയേക്കും

വൈകീട്ട് ജെ

എസ്

എൽ എ മാരുടെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങേണ്ടതില്ലെന്ന് കോൺഗ്രസ് കേന്ദ്രനേതൃത്തം തീരുമാനിച്ചതായി റിപ്പോർട്ടുണ്ട് അതിനിടെ രാജിയിൽനിന്ന് പിന്നോട്ടില്ലെന്ന് എം

എ മാരും നില പാട് സ്വീകരിച്ചതായാണ് റിപ്പോർട്ട് കർണ്ണാടകയിലെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീ ക്ഷിക്കുന്നതായി എ

ജനറൽ സെക്രട്ടറി കെ

രാജിവെച്ച എം

എ മാരുമായി സംസാരിച്ചിട്ടു ണ്ടെന്ന് അദ്ദേഹം ബംഗലൂരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കാര്യങ്ങൾ കൈവിട്ടുപോയിട്ടില്ലെന്നും സഖ്യഗവൺമെന്റിനെ നിലനിർത്താൻ ശ്രമം തുടരുകയാണെന്നും വേണുഗോപാൽ പറഞ്ഞു പാർട്ടിയിൽ അച്ചടക്കം നിലനിർത്തി പ്രശ്നം പരിഹരിക്കാനാണ് നീക്കം നടക്കുന്നത് ഇതിന് ഉപാ ധികളില്ലെന്നും വേണുഗോപാൽ വൃക്തമാക്കി ജനാധിപതൃ ഗ്രവൺമെന്റുകളെ ബിജെപി അസ്ഥിരപ്പെടുത്തുകയാ ണെന്ന് കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു

എൽഎ മാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് അദ്ദേഹം ബംഗലൂരുവിൽ കുറ്റപ്പെടുത്തി

ജനറൽ സെക്രട്ടറി ജ്യോതിരാദിത്യ സിന്ധ്യ രാജി വെച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ ചുമതലയായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബിജെപി അധികാരത്തിലെത്തു മെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു കേരളം ആന്ധ്ര തെല ങ്കാന സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്താൻ പാർട്ടിക്ക് ശക്തിയു ണ്ടെന്ന് പാർട്ടി അധ്യക്ഷൻകൂടിയായ അമിത്ഷാ ഹൈദരാബാദിൽ പറ ഞ്ഞു

സി രാഷ്ട്രീയകാര്യ സമിതി ഇന്ന് തിരുവനന്തപുരത്ത് ചേരും ഉച്ചകഴിഞ്ഞ് ഇന്ദിരാഭവനിലാണ് യോഗം പാർട്ടി പുനഃസംഘ ടനയും ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെ ടുപ്പും യോഗം ചർച്ച ചെയ്യും ആലപ്പുഴയിൽ യു

എഫ് സ്ഥാനാർത്ഥി യുടെ പരാജയം അന്വേഷിച്ച കെ

തോമസ് കമ്മീഷൻ റിപ്പോർട്ടും പരി ഗണിച്ചേക്കും കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തുനിന്ന് രാഹുൽ ഗാന്ധി രാജി വെച്ചത് സംസ്ഥാനത്ത് പാർട്ടിയുടെ പുനഃസംഘടന വൈകിപ്പിക്കില്ലെന്ന് കെ

സി സി

നിയമസഭാ ഉപ തെരഞ്ഞെടുപ്പുകളിൽ ആറുസീറ്റും പാർട്ടി നേടുമെന്നും അദ്ദേഹം തിരു വന്തപുരത്ത് പറഞ്ഞു കരിപ്പൂരിൽനിന്ന് ഹജ്ജ് വിമാന സർവ്വീസുകൾ ഇന്ന് ആരംഭിക്കും

കായികതാരം അഞ്ജുബോബി ജോർജ്ജിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയോ അംഗത്വം നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്രസഹ മന്ത്രി വി

ബിജെപി അംഗത്വ വിതരണ ചടങ്ങിനിടയിൽ എത്തിയ അഞ്ജുവിനെ പതാക നൽകി സ്വീകരിച്ചത് ഔപചാരിക നടപടി എന്ന രീതിയിലായിരു ന്നുവെന്നും മുരളീധരൻ അറിയിച്ചു

രാജേന്ദ്രബാബു കമ്മിറ്റി പുതുക്കി നിശ്ചയിച്ച ഫീസ് അംഗീകരി ക്കാനാവില്ലെന്ന് സ്വാശ്രയ മാനേജുമെന്റുകൾ അറിയിച്ചു

ക്രിസ്ത്യൻ പ്രൊഫ ഷണൽ കോളേജ് മാനേജ്മെന്റ് തുടർ നടപടികൾ ഇന്ന് തീരുമാനിക്കും

ഇന്ന് രാവിലെ പത്തുവരെ ഓപ്ഷൻ നൽകാമായിരുന്നു

കേരളാ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിന്റെ വൈദ്യുതി ഓട്ടോറിക്ഷ കൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉടൻ നിർമ്മാണം ആരംഭിക്കും

നവീകരിച്ച മെഷീൻ ഷോപ്പും മുഖ്യമന്ത്രി തുറന്നു കൊടുക്കും

ആധാറും പാനും സാമ്പ ത്തിക ഇടപാടുകൾക്ക് ഉപയോഗിക്കാമെന്ന ബജറ്റ് നിർദ്ദേശത്തിന്റെ അടി സ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം ഉത്തരാഖണ്ഡിലെ ഉത്തര കാശിയിൽ നേരിയ ഭൂചലനം

ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ മറ്റന്നാൾ ന്യൂസി ലൻഡിനെ നേരിടും

ബ്രസീൽ പെറുവിനെ നേരിടും

സാവോപോളോയിൽ നിലവിൽ ചാമ്പ്യൻന്മാരായ ചിലിയെ പരാ ജയപ്പെടുത്തി അർജന്റീന മൂന്നാം സ്ഥാനക്കാരായി

എൻ സത്യാർത്ഥി ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം ഡോ

ഹമീദ് ചേന്ദമംഗലൂർ കോഴിക്കോട്ട് സമ്മാനിച്ചു

എൻ സത്യാർത്ഥി വിവർത്തനം ചെയ്ത അങ്കണം എന്ന ഉർദു നോവൽ ചടങ്ങിൽ യു കെ കുമാരൻ പ്രകാശനം ചെയ്തു തലശ്ശേരിക്കടുത്ത് നാരങ്ങാപ്പുറത്ത് സ്വർണ്ണ വ്യാപാരിയെ തലക്കടിച്ച് വീഴ്ത്തി തങ്കക്കട്ടികൾ കവർന്ന കേസിൽ പൊലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി

ശ്രീകണ്ഠൻ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആന്തൂർ നഗരസഭയിലേക്ക് ഇന്നലെ മുസ്തിം യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലെ അക്രമുത്തോട് ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആറുപേരെ കോടതി റിമാൻഡ് ചെയ്തു പൊലീസിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റുണ്ടായ ത്

സംഭവത്തിൽ പൊലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് വകു പ്പുതല നടപടി കൊച്ചിയിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന പരാതി യിൽ അറസ്റ്റിലായ വൈദികനെ റിമാന്റ് ചെയ്തു കണ്ണമാലി സ്വദേശി ജെറി എന്ന് ഫാദർ ജോസഫിനെയാണ് തോപ്പുംപടി ഫസ്റ്റ്ക്ളാസ് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തത് പ്രതിക്കെതിരെ പോക്സോട് ലുമത്തി കൊച്ചി പെരുമ്പടം ബോയ്സ് ഹോമിലെ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാണ് പരാതി പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും രോഗികൾക്കു മായി ദുരന്ത നിവാരണ വകുപ്പിന്റെ പ്രത്യുത്ഥാനം ധനസഹായ പദ്ധതി പാലക്കാട് ജില്ലയിൽ നടപ്പാക്കും

പാലക്കാടിനു പുറമെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ വയനാട് ജില്ലകളിലും പ്രത്യുത്ഥാനം പദ്ധതി നടപ്പാക്കുന്നുണ്ട് വയനാട് ജില്ലയിലെ പ്രാഥമിക ആരോഗൃകേന്ദ്രങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ വകുപ്പ് അധികൃതരുടെയും കൂട്ടായ ഇടപെടലുകൾ ആവശ്യമാണെന്ന് ജില്ലാ കളക്ടർ എ

ജില്ലയിലെ മുഴുവൻ ആരോഗ്യകേന്ദ്രങ്ങളും ദേശിയതലത്തിൽ നിശ്ചയിച്ച നിലവാരത്തിലേക്ക് ഉയരുന്നതിന് ശ്രമങ്ങൾ നടത്തണം് ദേശീയ മാനദണ്ഡമനുസരിച്ച് ഒരു വർഷത്തിനകം പത്തിലധികം കേന്ദ്രങ്ങൾ റാങ്കിംഗ് നേടുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അട്ടപ്പാടിയിൽ ഭൂമിക്ക് വൃാജരേഖയുണ്ടാക്കി വായ്പയെടുത്ത സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം നടത്തും

ഇതിലാണ് മണ്ണാർക്കാട് ഡി

ഒ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊല്ലം ഓച്ചിറയിൽ അറബിക് കോളേജിലെ അന്തേവാസിക്ക് ഡിഫ്ത്തീരിയ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൌർജ്ജിതപ്പെടുത്തി

എല്ലാവർക്കും ടി ഡി വാക്സിൻ നൽകിയിട്ടുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാത്ത കുട്ടിക്കാണ് രോഗം ബാധിച്ചത് എന്നത് അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് ഡി എം ഒ അറിയിച്ചു

പരമ്പരാഗത ശിക്ഷാവിധി ആയ തടവ് പിഴ് എന്നിവയ്ക്ക് പകരം തിരഞ്ഞെടുത്ത കുറ്റവാളികളെ നവീകരണത്തിനും പുനരധിവാസത്തിനും വിധേയമാക്കുന്നതാണ് പദ്ധതി

കൊല്ലം വയനാട് പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിലെ പ്രാഥമിക പഠനത്തിന് ശേഷമാണ് പദ്ധതി വ്യാപിപ്പിക്കുന്നത്